ലോക്ഡൌൺ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും

രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആയുഷ് മന്ത്രാലയത്തിന്റെ കൊറോണ മാർഗരേഖ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി

ജന്മനാട്ടിലേയ്ക്ക് മടങ്ങിവര്ാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികളുടെ ഓൺട്ലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു

പ്രവാസികൾ തിരിച്ചുവരുമ്പോൾ കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിലും വിപുലമായ സജ്ജീകരണം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി

രാജ്യാന്തര കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ഇന്തൃ ഒരു ലക്ഷം ഹൈഡ്രോക്സി ക്ലോറോകിൻ ഗുളികകളും സർജിക്കൽ കൈയുറകളും ബംഗ്ലാദേശിലേയ്ക്ക് അയച്ചു

ദേശവ്യാപകമായി കഴിഞ്ഞമാസം ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിനുശേഷം മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നടത്തുന്ന മൂന്നാമത്തെ വീഡിയോ കോൺഫറൻസാണിത് മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് പ്രധാനമന്ത്രി ആദ്യ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് മേയ് മൂന്നുവരെ ലോക്ഡൌൺ ദീർഘിപ്പിച്ചു ലോക്ഡൌൺ അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രിമാരുമായുള്ള ചർച്ച നിർണായകമാണെന്നാണ് കരുതപ്പെടുന്നത്

കൊറോണ വൈറസ് പ്രതിരോധത്തിനായി ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ ഇതിനകം ലോക പ്രശ്ിസ് നേടിയിട്ടുണ്ട്

ആയുർപ്പേദത്തിനും യോഗയ്ക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് ലോകം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു

രോഗശമനത്തിന് വേഗം കൈവന്നതായി അദ്ദേഹം അറിയിച്ചു

അതിതീവ്രബാധിത ജില്ലകളിൽ പലതിലും സ്ഥിതി മെച്ചപ്പെട്ടു വരികയാണ്

ന്യൂഡൽഹി എയിംസിലെ ട്രോമാ കെയർ സെന്ററിലെ കോവിഡ് ചികിത്സാ സംവിധാനം കേന്ദ്രമന്ത്രി വിലയിരുത്തി ലോക്ഡൌൺ കൃത്യമായി പാലിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ജമ്മു കശ്മീർ ലഡാക്ക് വടക്കു കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ പവൻഹൻസ് ഹെലികോപ്റ്ററുകൾ സർവ്വീസ് നടത്തി സ്പൈസ് ജറ്റ് ബ്ലൂ ഡാർട്ട് ഇൻഡിഗോ എന്നീ കമ്പനികളും വാണിജ്യാടിസ്ഥാനത്തിൽ സർവ്വീസ് നടത്തി

ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ റിവ ഗാംഗുലി ദാസാണ് രണ്ടാംഘട്ട മരുന്ന് ബംഗ്ലാദേശിലേയ്ക്ക് കയറ്റി അയച്ച വിവരം അറിയിച്ചത്

ഈ സാഹചര്യത്തിൽ മരണകാരണ സർട്ടിഫിക്കറ്റ് പ്പിദ്ദേശത്തെ ഇന്ത്യൻ എംബസിയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്ക്റ്റ് എംബാമിങ് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണെന്ന് മന്ത്രാലീയം വ്യക്തമാക്കി

മരണ സംഖ്യ രണ്ട് ലക്ഷം കവിഞ്ഞു

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അമേരിക്കയിലാണ്

ഇവ നിലവിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത ഉന്നതതലയോഗം വിലയിരുത്തി

കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ പരിശോധിക്കാനും ആവശ്യമുള്ളവരെ നിരീക്ഷണത്തിലോ കാറന്റയിൻ കേന്ദ്രത്തിലേയ്ക്കോ മാറ്റാനുമുള്ള സംവിധാനം സംസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിനകത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേയ്ക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെ രജിസ്ട്രേഷൻ താമസിയാതെ ആരംഭിക്കുമെന്ന് നോർക്ക സി ഇ ഒ അറിയിച്ചു

വീടുകളിൽ സൌകര്യമില്ലാത്തവർ സർക്കാർ ഒരുക്കുന്ന നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയണം ഗൾഫ് മേഖലയിലെ പ്രവാസി പ്രതിനിധികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്

വിമാനത്താവളത്തിലെത്തുന്ന പ്രവാസികൾക്ക് അവിടത്തന്നെ സ്ക്രീനിംഗ് നടത്താൻ സജ്ജീകരണം ഒരുക്കും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ക്ഷേമനിധി പ്രവാസികളെ സഹായിക്കാൻ ഉപയോഗിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും തിരിച്ചുവരുന്ന പ്രവാസികളുടെ മക്കൾക്ക് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനം ആവശ്യമാണെങ്കിൽ സർക്കാർ അത് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

കാട്ടിലെ ്രഊട്ടൂവഴികളിലൂടെ കേരളത്തിലേയ്ക്ക് കടക്കുന്നത് തടയാൻ വനംവ്കുപ്പിന്റെ സഹകരണത്തോടെ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കളക്ടർമാരോടും ജില്ലാ പോലീസ് മേധാവികളോട്ടൂം ആവശ്യപ്പെട്ടു ഹോട്ട്സ്പോട്ട് ആയ മേഖലകളിൾ ആളുകൾക്ക് ്പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വീടുകളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കണം

രോഗലക്ഷണമില്ലാത്തവരെയും ഇപ്പോൾ ക്വാറന്റയിനിൽ കഴിയുന്ന മുഴുവൻ പേരെയും പരിശോധനയ്ക്ക് വിധേയമാക്കണം അതിനാവശ്യമായ കിറ്റ് സർക്കാർ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ജില്ലയിലെ പച്ചക്കറി അവശ്യ സാധനങ്ങളുടെ ചരക്കുനീക്കവുമായി ബന്ധപ്പെട്ട് മേലാമുറി കൊടുവായൂർ വേലന്താവളം പുതുനഗരം എന്നിവിടങ്ങളിലെ വ്യാപാരി പ്രതിനിധികളും ട്രേഡ് യൂണിയൻ നേതാക്കളുമായും പോലീസ് ഇന്ന് ചർച്ച നടത്തും

രണ്ടാംഘട്ട വിതരണത്തിനു ശേഷമായിരിക്കും മറ്റു കാർഡുടമകൾക്ക് വിതരണം ചെയ്യുക